ത കൃഷി വകുപ്പിന്റെ ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതി ഇന്ന് ഉദ്ഘാടനം ചെയ്യും

വാർത്തകൾ വിശദമായി കോവിഡ് സമൂഹ വ്യാപനം കേരളത്തിന് മുന്നിൽ ഭീഷണിയായി നിൽക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ട്രിപ്പിൾ ലോക്ഡൌൺ വ്യാപകമായ രോഗപരിശോധന പ്രാദേശിക തലത്തിലെ അധിക എന്നിവയെല്ലാം ജാഗ്രത കരുതൽ നടപടികളുടെ ഭാഗമായി ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ ഭൂരിപക്ഷം കോവിഡ് കേസുകളിലും രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ആരംഭത്തിൽ അറിയാൻ കഴിയാതെ പോയ പല കേസുകളുടെയും ഉറവിടം പിന്നീട് കണ്ടെത്തി ശേഷിക്കുന്നവയുടെ ഉറവിടവും ഉടൻ തിരിച്ചറിയാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അദ്ദേഹം അറിയിച്ചു പൊന്നാനിയിലെ ട്രിപ്പിൾ ലോക്ഡൌൺ ഫലപ്രദമായെന്നും അതിനാൽ നിയന്ത്രണം ഒഴിവാക്കിയതായും മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ഏർപ്പെടുത്തിയ ജാഗ്രത തുടരണമെന്ന് പിണറായി വിജയൻ നിർദ്ദേശിച്ചു

രുമ തിരുവനന്തപുരം നഗരത്തിലെ ട്രിപ്പിൽ ലോക്ഡൌൺ പശ്ചാത്തലത്തിൽ സെക്രട്ടേറിയറ്റിൽ അവശ്യ സേവന വിഭാഗങ്ങളുടെ പ്രവർത്തനത്തിനെത്തുന്ന ജീവനക്കാരെ വഴിയിൽ തടയാതിരിക്കാൻ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറി ഡോ ബിശ്വാസ് മേത്ത ഡി ജി പി ലോക്നാഥ് ബെഹ്റയ്ക്ക് കത്ത് നൽകി കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി ചീഫ് സെക്രട്ടറിയടക്കം പ്രധാനപ്പെട്ട സെക്രട്ടറിമാരുടെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട് ഇതുകൂടാതെ കോവിഡ് വാർ റൂം കാന്റീൻ എന്നിവയും ചുരുങ്ങിയ ജീവനക്കാരെ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുമെന്ന് ചീഫ് സെക്രട്ടറി അറിയിച്ചു രെ കാസർകോട് ജില്ലയിൽ കോവിഡ് സമ്പർക്ക വ്യാപനം തടയുന്നതിന് ശക്തമായ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചതായി മന്ത്രി ഇ

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി പി

തിരക്ക് നിയന്ത്രിക്കാൻ നടപടികൾ ഏർപ്പെടുത്തിയ ഫലപ്രദമാകാത്തതിനെത്തുടർന്നാണ് ഹാർബറുകൾ അടച്ചിടാൻ ജില്ലാ കലക്ടർ ഉത്തരവിട്ടത്

വലിയങ്ങാടി പാളയം എസ് എം സ്ട്രീറ്റ് സെൻട്രൽ മാർക്കറ്റ് എന്നിവിടങ്ങളിൽ വാഹന സഞ്ചാര നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും സാമൂഹിക അകലം സാനിറ്റൈസേഷൻ നടപടികൾ എന്നിവ ശക്തമാക്കും രുമ കോഴിക്കോട് നഗരസഭാ പരിധിയിലെ ഒരു ഫ്ളാറ്റിൽ ഒരേ സമയം ഒട്ടേറെ കോവിഡ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ഫ്ളാറ്റുകളിലെ താമസക്കാർ കോവിഡ് പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കണമെന്ന് കോർപ്പറേഷൻ നിർദ്ദേശം നൽകി കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് നിയന്ത്രണങ്ങൾ പാലിക്കാത്തവർക്കെതിരെ കർശന നടപടികൾ ഉണ്ടാവുമെന്ന് മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ അറിയിച്ചു രുദ എറണാകുളം ജില്ലയിൽ കോവിഡ് രോഗലക്ഷണം കാണിക്കുന്ന എല്ലാവരെയും മാനദണ്ഡങ്ങൾ പാലിച്ച് ആന്റിജൻ പരിശോധനയ്ക്ക് വിധേയരാക്കാൻ തീരുമാനമായി ജില്ലയിൽ സമ്പർക്ക രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പരിശോധന വ്യാപകമാക്കുന്നത് സ്വകാര്യ ആശുപത്രികളിൽ ആന്റിജൻ ടെസ്റ്റിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കാൻ നിർദ്ദേശം നൽകി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ ജില്ലാതല കോവിഡ് അവലോകന യോഗത്തിൽ മന്ത്രി വി എസ് സുനിൽ കുമാർ നിർദ്ദേശം നൽകി അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ചരക്ക് വാഹനങ്ങളിലെ ഡ്രൈവർമാർ പൊതുജനങ്ങളുമായി ഇടപെടുന്ന സാഹചര്യങ്ങൾ അനുവദിക്കാൻ പാടില്ലെന്നും മന്ത്രി പറഞ്ഞു രേര രണ്ടുപേർക്ക് ഉറവിടം അറിയാത്ത കോവിഡ് ബാധ സ്ഥിരീകരിച്ചതിനെത്തുടർന്ന് കണ്ടെയ്ൻമെന്റ് സോണാക്കിയ കുന്നംകുളം നഗരസഭയിലെ എട്ട് വാർഡുകളിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി രോഗവ്യാപന സാധ്യത തടയുന്നതിന് ജാഗ്രതാ നിർദ്ദേശം നൽകി

ചാലക്കുടി നഗരസഭയെ കണ്ടെയ്ൻമെന്റ് സോൺ നിയന്ത്രണത്തിൽനിന്ന് ഒഴിവാക്കി

കണ്ണൂർ ഡി എസ് സി കന്റോൺമെന്റ് ഏരിയയും നിയന്ത്രിത മേഖലയായി നിലനിർത്തും

ഇവർ ഒളിവിൽ പോയെന്നാണ് സൂചനയെന്ന് കസ്റ്റംസ് കേന്ദ്രങ്ങൾ അറിയിച്ചു

എസ് സുനിൽ കുമാർ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യും

രദേ ഇടുക്കിയിലെ കുറിഞ്ഞി പുനരുജ്ജീവന പദ്ധതിയുടെ ഭാഗമായി മൂന്നാർ ദേശീയോദ്യാനത്തിൽ തൈകൾ നടുന്ന പദ്ധതി മന്ത്രി കെ

സ്വാഭാവിക വനവൽക്കരണത്തിനും പരിസ്ഥിതി പുനഃസ്ഥാപനത്തിനും പ്രാധാന്യം നൽകുന്ന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചതായി മന്ത്രി പറഞ്ഞു കുറിഞ്ഞി ഉദ്യാനത്തിന്റെ ഭാഗമായ കുറിഞ്ഞിഘട്ടും ജില്ലയിലെ നാല് ഫോറസ്റ്റ് സ്റ്റേഷനുകളും ബാരക്കുകളും മന്ത്രി ഉദ്ഘാടനം ചെയ്തു

ആദ്യഘട്ടത്തിൽ മണ്ണിൽക്കടവ് മുതൽ പുല്ലാഞ്ഞിമേട് വരെ നവീകരണ പ്രവൃത്തി നടത്തും രുമ വയനാട് വിംസ് മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് ഏറ്റെടുക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കാൻ മറ്റന്നാൾ വിദഗ്ദ്ധ സമിതി ആശുപത്രി സന്ദർശിക്കും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോ വിശ്വനാഥൻ നേതൃത്വം നൽകുന്ന സംഘം മൂന്നാഴ്ചക്കകം ഗവൺമെന്റിന് റിപ്പോർട്ട് നൽകും രുമ കൊല്ലത്ത് വനംവകുപ്പ് സംഘടിപ്പിച്ച വനമഹോത്സവം ഇന്ന് സമാപിക്കും വൈകിട്ട് നാലിന് ചെന്തുരിണി വന്യജീവി സങ്കേതം ഹാളിൽ മന്ത്രി കെ രാജു ഔദ്യോകിക സമാപനം ഫേസ്ബുക്ക് ലൈവിലൂടെ പ്രഖ്യാപിക്കും രുമ ഈ മാസം നടക്കേണ്ട അവസാന സെമസ്റ്റർ പരീക്ഷകൾ സെപ്തംബർ അവസാനത്തോടെ നടത്താൻ സർവകലാശാലകൾക്ക് യു

മറ്റു സെമസ്റ്ററുകളുടെ മൂല്യനിർണയം മുൻനിശ്ചയപ്രകാരം ഇന്റേണൽ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നടത്തും രുമ ഇടുക്കി നെടുങ്കണ്ടത്ത് റിസോർട്ടിൽ നിയമവിരുദ്ധമായി ബെല്ലി ഡാൻസ് സംഘടിപ്പിച്ച കേസിൽ ആറ് ജീവനക്കാരെ അറസ്റ്റ് ചെയ്തു

നാല് വിവിധ വിഭാഗങ്ങളായാണാ ക്യാമ്പുകൾ ഒരുക്കിയത്